കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രിമാരുമായുള്ള വീഡിയോ കോൺഫറൻസിങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സർവ്വീസുകൾ നാളെ മുതൽ ഭാഗികമായി പുനരാരംഭിക്കും

കൌൺസിലിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

രോഗവൃാപനം കൂടുതൽ ഉള്ള പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തീവ്രവ്യാപനമുള്ള മേഖലകളെ നേരിടേണ്ടതിനെകുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വരും ദിനങ്ങളിൽ വേഗം കൂടുമെന്നും അദ്ദേഹം വൃക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം ദിബ്രുഗഡ് അഗർത്തല ഹൌറ പാട്ന ബിലാസ്പൂർ റാഞ്ചി ഭുവനേശ്വർ സെക്കന്തരാബാദ് ബംഗളൂരു ചെന്നെ മഡ്ഗാവ് മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കാണ് ട്രെയിൻ സർവ്വീസുകൾ

ടി സി

റെയിൽവേ സ്റ്റേഷനുകളിൽ ബുക്കിംഗ് ഉണ്ടാ വില്ല

ബുക്ക് ചെയ്തവരെ മാത്രമേ സ്റ്റേഷനുകളിൽ പ്രവേശിപ്പിക്കുകയുള്ളു

കോച്ചുകളുടെ ലഭ്യത അടിസ്ഥാനമാക്കി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവ്വീസ് നടത്താൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപതിനായിരം കോച്ചുകൾ കോവിഡ് രോഗികളെ പാർപ്പിക്കാൻ സജ്ജമാക്കിയിരിക്കയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തൊഴിലാളികളെ എത്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടത്തെ സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവസാനസ്റ്റേഷന് പുറമേ മൂന്ന് സ്റ്റോപ്പുകൾ കൂടി അനുവദിക്കാനും തീരുമാനിച്ചു

ഈ മാസം ഒന്ന് മുതൽ ഇതുവരെ അഞ്ച് ലക്ഷം യാത്രക്കാരെയാണ് റെയിൽവേ വിവിധ സംസ്ഥാനങ്ങളിലായി എത്തിച്ചത് യാത്രക്കാർക്ക് സൌജന്യ ഭക്ഷണവും വെള്ളവും നൽകുന്നുണ്ട്

കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളൂ നീാല് പേർക്കും പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ്ണിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

കാസർഗോഡ് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവർ മഹാരാഷ്ട്രയിൽ നിന്നും പ്ലന്റവരാണ് പാലക്കാട് ജില്ലയിൽ ര്യോഗം സ്ഥിരീകരിച്ച ആൾ ചെന്നൈയിൽ നിന്നും വന്നതും മലപ്പുറം ജില്ലയിൽ കുവൈറ്റിൽ നിന്നും വന്നയാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് വയനാട് ജില്ലയിൽ സമ്പർക്കം വഴിയാണ് ഒരാൾക്ക് രോഗം വന്നത് എന്നും സ്ഥിരീകരിച്ചു

ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഐസൊലേഷനിൽ കഴിയുന്ന രോഗലക്ഷണങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും പാലിക്കേണ്ട കാര്യങ്ങളാണ് മാർഗ്ഗനിർദ്ദേശത്തിൽ വിശദീകരിക്കുന്നത് ഐസൊലേഷനിൽ കഴിയാനുള്ള സൌകര്യങ്ങൾ വീട്ടിലുണ്ടാകണം

സഹായിയും സമ്പർക്കത്തിൽ വരുന്നവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉപയോഗിക്കണം

ഐസൊലേഷനിലുള്ള ആൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗൃപ്രശ്നങ്ങൾ കാണിച്ചാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം

രോഗിയെ പരിചരിക്കുന്നവർ ഉപയോഗിക്കേണ്ട സുരക്ഷാ കവചങ്ങളെക്കുറിച്ചും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്

സി

അതിനിടെ നേരത്തെ റദ്ദാക്കിയ ദോഹ തിരുവനന്തപുരം വിമാനം നാളെ സർവ്വീസ് നടത്തുമെന്ന് ഖത്തർ എംബസി അറിയിച്ചു

എസ് മഗർ യാത്ര തിരിച്ചത്

താക്കറെയ്ക്ക് പുറമേ ശിവസേന വീണ്ടും മത്സരിപ്പിക്കുന്ന് നീലം ഗേറെയും പത്രിക സമർപ്പിച്ചു

ഐ യിലെത്തിയതായി കൃഷി മന്ത്രാലയം അറിയിച്ചു

സർക്കാർ അനുമതിയുള്ള പ്രവർത്തന്റങ്ങൾക്കായി ജില്ലയ്ക്കകത്തും അന്തർജില്ലാ യാത്രകൾക്കും പാസ്സ് ആവശ്യമല്ല